രാജ്യത്ത് ഒരാഴ്ചത്തെ ദേശീയ ദുഃഖാചരണം പ്രണബ് മുഖർജിക്ക് ലോക നേതാക്കളുടെ ആദരം

മെട്രോ സർവ്വീസുകൾ ഈ മാസം ഏഴ് മുതൽ

കെ മാണി വിഭാഗത്തിന് വാർത്തകൾ വിശദമായി ഇന്നലെ അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഭൌതിക ശരീരം ഉച്ചയ്ക്ക് രണ്ടുമണിയോടെ ഡൽഹിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്ക്കരിക്കും രാജാജി മാർഗ്ഗിലെ വസതിയിൽ രാവിലെ ഒമ്പത് മുതൽ ഭൌതിക ശരീരം പൊതു വെയ്ക്കും

സംസ്കാര ചടങ്ങുകളിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കും

അദ്ദേഹത്തിന്റെ മകൻ അഭിജിത് മുഖർജിയാണ് ട്വിറ്ററിലൂടെ ചരമ വിവരം അറിയിച്ചത്

വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ബോധാവസ്ഥയിലേക്ക് തിരികെയെത്താതെയാണ് മരണമടഞ്ഞത് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഞായറാഴ്ചയോടെ മുഖർജിയുടെ നില ഗുരുതരമായി

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

ചരിത്രത്തിലും രാഷ്ട്രമീമാംസയിലും ബിരുദാനന്തര ബിരുദവും കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നേടി

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താല്പര്യം അദ്ദേഹത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും തുടർന്ന് നരസിംഹ റാവുവിനൊപ്പവും അതിനുശേഷം ഡോ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലും അദ്ദേഹം ധനം രാജ്യരക്ഷ വിദേശകാര്യം വാണിജ്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു

അഞ്ചു തവണ രാജ്യസഭയിലേക്കും രണ്ടു പ്രാവശ്യം ലോക്സഭയിലേക്കും പ്രണബ് മുഖർജിയെ തെരഞ്ഞെടുത്തു പാർലമെന്റിന്റെ ഇരുസഭകളിലും കക്ഷി നേതാവായിരുന്നു അദ്ദേഹം നയതന്ത്ര തലത്തിലും അന്താരാടഷ്ട്ര നാണ്യനിധി ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് എന്നിവയുടെ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു

ഈ മാസം ആറു വരെ ഔദ്യോഗിക പൊതുപരിപാടികൾ ഉണ്ടാവില്ല ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പാതി താഴ്ത്തിക്കെട്ടും

റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുചിൻ ഇസ്രായേൽ പ്രസിഡന്റ് റുവൻ റിവലിൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി ശ്രീലങ്കൻ പ്രസിഡന്റ് മഹിന്ദ രാജ പക്സെ തുടങ്ങിയവർ പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു ബംഗ്ലാദേശിൽ നാളെ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി

ഐ നേതാവ് ഡി രാജ ആർ എസ് എസ് സർസംഘ ചാലക് ഡോ മോഹൻ ഭഗവത് അടക്കം രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സംസ്ഥാന ഗവർണർമാർ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു രെര തലത്തിൽ ഇന്ത്യയുടെ സാർവദേശീയ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ശ്രദ്ധേയ പങ്കുവഹിച്ച രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പ്രണബ് മുഖർജിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ പരിരക്ഷിക്കാനും ശാക്തീകരിക്കാനും നിലകൊണ്ട അദ്ദേഹം മതനിരപേക്ഷതയടക്കം മൂല്യങ്ങൾ സമൂഹത്തിൽ രൂഢമൂലമാക്കാൻ നിരന്തരം ശ്രമിച്ചു കേരളവുമായും മലയാളികളുമായും ഗാഢവും സൌഹൃദപൂർണവുമായ ബന്ധമായിരുന്നു പ്രണബ് മുഖർജിയുടേത് അദ്ദേഹത്തിന്റെ വിയോഗം രാഷ്ട്രത്തിനും ജനതക്കും കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി ഫേസ് ബുക്കിൽ കുറിച്ചു അപൂർവ്വം വ്യക്തികളിൽ മാത്രം കാണുന്ന രാജ്യതന്ത്രജ്ഞത നിറഞ്ഞ നേതാവായിരുന്നു പ്രണബ് മുഖർജിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

അടിയുറച്ച ദേശീയ വാദിയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം രാഷ്ട്രപതി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റുമായി നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ദേദ കോവിഡ് അൺലോക്ക് നാല് മാർഗ്ഗ നിർദ്ദേശങ്ങൾ ഇന്ന് നിലവിൽ വരും ഏഴാം തീയതി മുതൽ ഘട്ടങ്ങളായി മെട്രോ റെയിൽ സർവ്വീസുകൾ തുടങ്ങും

വിനോദ കായിക സാംസ്കാരിക പരിപാടികൾക്കും ഇതേ മാനദണ്ഡം ബാധകമാണ്

രുമ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ ഒരാൾകൂടി മരിച്ചതായി റിപ്പോർട്ട്

കഴിഞ്ഞ ഞായറാഴ്ച മുഹമ്മദിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു

രുമ കോവിഡ് വാക്സിന് അടിയന്തര അംഗീകാരം നൽകുന്നത് അത്യന്തരം ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി രാജ്യങ്ങൾക്ക് വാക്സിനുകളെ അംഗീകരിക്കാൻ അധികാരമുണ്ടെങ്കിലും പരീക്ഷണ ഫലങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചും ഫലപ്രാപ്തി ഉറപ്പാക്കിയുമായിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന മുഖ്യ ശാസ്ത്രജ്ഞ ഡോ സൌമ്യ സ്വാമിനാഥൻ ആവശ്യപ്പെട്ടു

ഏഴ് ലക്ഷത്തിൽപ്പരം വിദ്യാർത്ഥികൾ ഇതിനകം അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വയനാട് ഒഴികെ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്

ഒക്ടോബർ ഒന്ന് വരെയായിരിക്കും സമ്മേളനമെന്ന് ലോക്സഭാ സെക്രട്ടറിയേറ്റ് അറിയിച്ചു കോവിഡ് സാഹചര്യത്തിൽ ചേരുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തിന് ഒട്ടേറെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ എം പിമാരെയും പരിശോധനാ വിധേയരാക്കാനും സാമൂഹിക അകലം പാലിച്ച് അംഗങ്ങളെ ഇരുത്താനും പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും രേര കേരളാ കോൺഗ്രസ്സിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം രണ്ടില ജോസ്

ചിഹ്നത്തിന് പി

ജോസഫ് വിഭാഗം ഉന്നയിച്ച അവകാശ വാദം കമ്മീഷൻ തള്ളി

കെ മാണി തീരുമാനത്തെ സ്വാഗതം ചെയ്തു വിധിയ്ക്കെതിരെ അപ്പീൽ പൊകുമെന്ന് പി

ജോസഫ് പ്രതികരിച്ചു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡി

എഫ് ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ആറംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പൊലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് പാർട്ടി ഓഫീസുകൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പകൽ ഹർത്താൽ തുടങ്ങി

ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു